സമ്പൂർണ ലോക്ഡൌൺ ആഅവശ്യ സേവനങ്ങൾ മാത്രമാകും അനുവദ്ദീക്കുക പൊതുഗതാഗതം നിർത്തിവയ്ക്കും സംസ്ഥാനത്ത് ഇന്റ്റും നാളെയും കൂടുതൽ ദീർഘദൂര ന് സർവീസുകൾ നടത്തുമെന്ന് കെ എസ് ആർ ടി

പശ്ചിമബംഗാളിൽ കേന്ദ്രമന്ത്രി വി

ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി കബറടക്കം ഔദ്യോഗിക ബഹുമതിയോടെ നടന്നു

സംസ്ഥാനത്ത് ആശങ്ക പരത്തി കോവിഡ് മരണങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്

ഒരു പ്രദേശത്തേയും ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല

കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത്

വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത് ലോക്ക്ഡൌൺ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ് സംസ്ഥാന സർക്കാർ ഉടൻ പുറത്തിറക്കും

എന്നാൽ ആശുഷ്ട്രതി സേവനങ്ങൾക്കും ചരക്കുനീക്കത്തിനുമടക്കം തടസ്സം ഉണ്ടുപ്പില്ല് ദീർഘദൂര സർവ്വീസുകൾ സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ സമ്പൂർണ്ണ ലോക് ഡോൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദീർഘദൂര യാത്രക്കാരുടെ ആവശ്യാനുസരണം കെ എസ് ആർ ടി സി ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ പരമാവധി സർവ്വീസുകൾ നടത്തും ഇന്നും നാളെയും യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെടാൻ സാധൃതയുള്ളതിനാൽ പരാതിരഹിതമായി കൂടുതൽ സർവീസുകൾ നടത്തണമെന്ന് യൂണിറ്റ് ഓഫീസർമാർക്ക് കെ എസ് ആർ ടി സി സി എം

ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കുമായി പ്രത്യേക സർവീസ് നടത്തുന്നതിന് കെ എസ്

ടി സി തയ്യാറാണെന്നും സി എം

പാലരുവി വേണാട് കണ്ണൂർ ജനശതാബ്ദി വഞ്ചിനാട് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ചെന്നൈ തിരുവനന്തപുരം വീക്കിലി അന്ത്യോദയ ഏറനാട് ബാംഗ്ലൂർ ഇന്റർസിറ്റി ബാനസവാടി എറണാകുളം മംഗലാപുരം തിരുവനന്തപുരം നിസാമുദീൻ തിരുവനന്തപുരം വീക്കിലി എക്സ്പ്രസ് തുടങ്ങിയവ റദ്ദാക്കിയ ട്രെയിനുകളാണ്

സ്ഥകാര്യ ആശ്രുപത്രികളിലെ കൊവിഡ് ചികിത്സാ നിരക്കുകൾ കുറിയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സ്ർക്കാർ ഇക്കാര്യം അറിയിച്ചത് സ്വകാര്യ ആശുപത്രികൾ പി

സ്വകാര്യ ആശുപത്രികളുമായി സർക്കാർ നടത്തുന്ന ചർച്ചകളുടെ വിവരങ്ങൾ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

എസ് എ പ്ലാൻറുകളിൽ ആദ്യത്തേത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്നുമുതൽ ഉൽപ്പാദനം തുടങ്ങി ചൊവ്വാഴ്ച നടത്തിയ ട്രയ്ൽ റൺ വിജയം കണ്ടതിനാൽ ഇന്നുമുതൽ പൂർണ തോതിൽ ഉൽപാദനം തുടങ്ങി

സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന് നാലു പ്ലാന്റുകളിൽ ഏറ്റവും ചെറുതാണിത്

ഇ സഞ്ജീവനി ആരോഗ്യവകുപ്പ് സംസ്ഥാനം ലോക്ഡൌണിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ടെലി മെഡിസിൻ സംവിധ്യാനമായ ഇ സഞ്ജീവനി വിപുലീകരിച്ചതായി ആരോഗ്യ വക്ടുപ്പ്പ് ് വെള്ളിയാഴ്ച മുതൽ ഇ സഞ്ജീവനി വഴിയുള്ള കോവിഡ് ഒ

ആക്രമണത്തിൽ കേന്ദ്രമന്ത്രിയുടെ കാർ തകർക്കപ്പെടുകയും നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിനിരയായ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം മടങ്ങവെയാണ് ഒരുകൂട്ടം ആളുകൾ കേന്ദ്രമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനു നേരെ അക്രമം അഴിച്ചു വിട്ടത് ആക്രമത്തെ ശക്തമായി അപലപിക്കുന്നതായി ബി

സംസ്ഥാന അധ്യക്ഷൻ കെ

വൈകിട്ട് മൂന്നിന് ആരംഭിച്ച ശ്രുശ്രൂഷകൾക്ക് ശേഷം തിരുവല്ല സഭാ ആസ്ഥാനത്ത് സെന്റ് തോമസ് മാർത്തോമാ പള്ളിക്ക് സമീപം പ്രത്യേകം തയാറാക്കിയ കല്ലറയിലാണ് കബറടക്കം നടന്നത് ചടങ്ങുകൾക്ക് ഡോ

കോവിഡ് നിയന്ത്രണം കാരണം നഗരം ചുറ്റൽ അടക്കമുള്ള ചടങ്ങുകൾ സഭാ ആസ്ഥാനത്ത് മാത്രമായി ചുരുക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമൂന്ത്രി ഉമ്മൻ ചാണ്ടി വിവിധ സഭാ പ്രതിനിധികൾ സാമൂഹ്ട്രിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അടക്കം നിരവധി പേർ അന്ത്യ്യാപ്പചാരം അർപ്പിച്ചു

ഉപനേതാവായി എം

മുസ്തീം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് തീരുമാനം

ഹാർബർ പ്രവർത്തിക്കുന്നത് കൊവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് വിവരം ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു

ഡി ഒ സ്ഥലം സ്ട്രിങ്ങർശിച്ച് സ്ഥിതി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീർുമാനം

എസ്

വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ പകർച്ചവൃാധി നിയമപ്രകാരമാണ് പൊലീസ് കേസെടുത്തത് ശ്മശാനം മനുഷ്യാവകാശ കമ്മീഷൻ കോവിഡ് ബാധിതരുടേതുൾപ്പെടെയുള്ള മരണങ്ങൾ കൂടിയതോടെ തിരുവന്തപുരം ് ജില്പയിലെ ശ്മശാനങ്ങളിൽ ശവസംസ്ക്കാരത്തിനുള്ള സംവിധാനം അപര്യാപ്തമായതിനെ കുറിച്ച് ജില്ലാ കളക്ടർ അടിയന്തിരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മഴ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധൃതയെന്ന് കാലാവസ്ഥാ വിഭാഗം മലപ്പുറം ജില്ലയിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

സ്വർണ്ണവിലയിൽ നേരിയ വർധന